ഇതേ പ്രായത്തിലുള്ളവരെ കൂട്ടബലാൽസംഗത്തിന് ഇരയാക്കിയാൽ ജീവപര്യന്തം ശിക്ഷ ബിൽ ഉറപ്പിക്കുന്നു

ശബ്ദവോട്ടോടെ പാസാക്കിയ ബില്ലിനെ ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ചു

പ്രതികൾക്ക് മുൻകൂർജാമ്യം അനുവദിക്കരുതെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്

ആൾക്കൂട്ട കൊലപാതകം പ്രാകൃതമായ നടപടിയാണെന്നും ഇക്കാര്യം അംഗീകരിക്കാനാവില്ലെന്നൂർ മഹാരാഷ്ട്രയിലെ യവത് മാളിൽ നാദ്ജോഗി സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തവെ ആഹിർ പറഞ്ഞു പരിഷ്കൃത സമൂഹത്തിന് ഇത്തരം പ്രാകൃത നടപടികളെ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

അസമിൽ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ കരട് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം

ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ എത്തിയാലുടൻ വിഷയം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം ഉറപ്പുനൽകി എങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നതിനെ തുടർന്ന് ശ്രീ നായിഡു സഭ ഉച്ചവരെ നിർത്തിവച്ചു

ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ജനാധിപതൃത്തിന്റെ വേരുകൾ ഉറയ്ക്കുമെന്നാണ് പ്രതീക്ഷിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു അയൽരാജ്യത്തെ സ്മാക്കാനവും വികസനവുമാണ് തന്റെ ദർശനവുമെന്ന് പ്രധാന്റ്മ്പ്രി വ്യക്തമാക്കി

ജെ

പാർലമെന്ററി പാർട്ടി ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നു ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ യോഗം അഭിനന്ദിച്ചു അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തിയതിൽ എൻ ഡി എയുടെ എല്ലാ ഘടകകക്ഷികളെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു ഗവൺമെന്റിന് നൽകുന്ന പിന്തുണയ്ക്ക് രാജ്യത്തെ എല്ലാ ജനങ്ങളോടും അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു

ദേശീയ പൌരത്വ രജിസ്റ്റർ ഒരു മതത്തിന്റേയും അടിസ്ഥാനത്തിലല്ല തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇന്ത്യാക്കള്ളത്യും അല്ലാത്തവരെയും തിരിച്ചറിയാനുള്ള രേഖ മാത്രമാണെന്നും പാർട്ടി വക്താവ് സെയ്ദ് മാമിനുൽ അവോൾ ആകാശവാണിയോട് പറഞ്ഞു

കഴിഞ്ഞ ഏപ്രിലിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ മല്യയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ഇന്നത്തെ കോടതി വിധി നിർണായകമാണ്

ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്ലോമസി ആന്റ് ഇന്റർ നാഷണൽ അഫയേഴ്സും നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറിയും സംയുക്തമായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് നേപ്പാൾ മുൻ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹാൽ പ്രചണ്ഡ ഉദ്ഘാടനം ചെയ്യും

ജെ

മലയോര മേഖലകളിൽ മഴ വലിയ നാശം വിതച്ചു

ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരത്ത് പൊട്ടിവീണ വൈദ്യുതകമ്പിയിൽ തട്ടി ഒരാൾ മരിച്ചു

മഴ കനത്തോടുകൂടി ആലപ്പുഴയിലെ കുട്ടനാട് വീണ്ടും ഭീതിയിലായി

കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും ശക്തിപ്പെട്ടു ജില്ലയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നു ഇടുക്കി ഡാം തുറന്നാൽ പെരിയാറിന്റെ തീരത്ത് ആലുവ വരെയുള്ള മുൻകരുതൽ നടപടികൾ ഉറപ്പുവരുത്തിയിട്ടുള്ളട്ട് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ പൊത്തുണ്ടി ഡാമുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതപാല്പിക്ക്ണം കോഴിക്കോട് ബേപ്പൂരിൽ കടലാക്രമണം രൂക്ഷമാണ്

കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ മലയോരത്ത് പ്യാപക നഷ്ടമുണ്ടാക്കി

ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു ജലനിരപ്പ് ഉയർന്നാൽ റെഡ് അലർട്ട് നൽകി ജനങ്ങളെ വൃക്തമായ വിവരം അറിയിച്ച ശേഷം മാത്രമെ ഷട്ടർ തുറക്കുകയുള്ളൂവെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

മൂന്നാംഘട്ട മുന്നറിയിപ്പായ റെഡ് അലർട്ട് നൽകി ജനങ്ങളെ വൃക്തമായ വിവരം അറിയിച്ച ശേഷം മാത്രമെ ഷട്ടർ തുറക്കുകയുള്ളൂ ഓറഞ്ച് അലർട്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള മുന്നറിയിപ്പ് മാത്രമാണെന്ന് അതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇടുക്കി ജില്ലാക്കൂളക്ടർ അറിയിച്ചു

മികച്ച എഴുത്തുകാരനും സാഹിത്യകാരനുമായ പ്രേംചന്ദ് സാധാരണക്കാരുടെ ജീവിതം തന്റെ എഴുത്തുകളിൽ കൊണ്ടുവരാൻ പ്രത്യേകം പരിശ്രമിച്ചതായി ശ്രീ രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു

ഇന്ത്യൻ താരങ്ങളായ എച്ച്

പ്രണോയ് സമീർ വർമ്മ എന്നിവർ രണ്ടാം റൌണ്ടിലേക്ക് നേരത്തെ കടന്നിരുന്നു വനിതാ സിംഗിൾസിൽ സൈന നെഹ്വാൾ തുർക്കിയുടെ അലിയെ സെമിർ ബാഗിയെ നേരിടും ഇന്ത്യയുടെ പി

വ്യാഴാഴ്ച നടക്കുന്ന കാർട്ടർ ഫൈനലിൽ ഈ മത്സരത്തിലെ വിജയിയാണ് അയർലണ്ടുമായി കളിക്കേണ്ടത്